ഭീകരതയ്ക്കെതിരായി ആഗോള സഹകരണം ശക്തമാക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ഷാങ്ഹായ് സഹകരണ സംഘടനാ നേതാക്കൾ

കിർഗിസ്ഥാനി ലെ ബിഷ്കെക്കിൽ ഇന്ന് നടന്ന ഷാങ്ഹായ് ഉച്ചകോടിയിലാണ് നേതാക്കൾ ഭീകരതയ്ക്കെതിരായ പ്രഖ്യാപിച്ചത് ഭീകരവാദത്തിനെതിരായി ആഗോള സഹകരണം ശക്തമാക്കണമെന്നും അന്താരാഷ്ട്ര ഭീകരത സംബന്ധിച്ച സമഗ്ര സമ്മേളനം എന്ന ആശയം സ്വീക്ടാര്യമാക്കാൻ രാഷ്ട്രങ്ങൾ തമ്മിൽ സമവായം ഉണ്ടാക്കണമെന്നും നേതാക്കന്മാർ അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചു

ഭീകരത വേരോടെ പിഴുതെറിയാൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കൂട്ടായ പരിശ്രമം അനിവാര്യമാ ണെന്ന് ശ്രീ

നമ്മുടെ സമൂഹത്തെ ഭീകര വിമുക്തമാക്കണമെന്ന് ശ്രീ

ഭീകരതയ്ക്കെതിരായ അന്താരാഷ്ട്ര സമ്മേളനത്തിന് അദ്ദേഹം ആഹ്വാനം നൽകി ഭീകരതയ്ക്ക് ഉത്തരവാദികൾ അതിന് പണവും സഹായവും പിന്തുണയും നൽകുന്ന രാജൃങ്ങളാ ണെന്നും ഇതിന് കണക്കുപറയേണ്ടിവരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭീകരവാദവും തീവ്രവാദവും പോലുള്ള പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ലെന്ന് ഉച്ചകോടിയിൽ പങ്കെടുത്ത അംഗരാജൃങ്ങളിലെ നേതാക്കന്മാർ എടുത്തുപറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഹർഷ് വർദ്ധൻ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് കത്തയച്ചു ഡോക്ടർമാർ തുടരുന്ന സമരം മൂലം രോഗികൾ ഏറെ ബുദ്ധിമുട്ടൂകയാണെന്നും ആരോഗൃ പ്രവർത്തനങ്ങളെ അത് സാരമായി ബാധ്ച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാട്ടി

രാംമനോഹർ ലോഹ്യ ആശുപൃത്രി ക്യ്ന്നിവിടങ്ങളിലെ റസിഡന്റ് ഡോക്ടർമാരുമായി കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി ഡോക്ടർമാർക്കെതിരെ അർക്കമർ അഴിച്ചുവിടുകയാണെന്ന് കാണിച്ച് ഡോക്ടർമാരുടെ സംഘടനകൾ കേന്ദ്ര ആരോഗ്യ മന്ത്രിക്ക് നിവേദനം സമർപ്പിച്ച്തിന്ന് തുടർന്ന് അവരുമായി മന്ത്രി നേരിട്ട് ചർച്ച നടത്തി ആശ്ചുപത്രിക്ക് സുരക്ഷ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി താൻ ചർച്ച നടത്തിയതായും ശ്രീ ഹർഷ് വർദ്ധൻ പറഞ്ഞു

ഒരു രോഗി മരിച്ചതിനെ തുടർന്ന് ബന്ധുക്കൾ രണ്ട് ഡോക്ടർമാരെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് ജോലിക്ക് തിരിച്ചെത്താൻ ഡോക്ടർമാരെ പ്രേരിപ്പിച്ച് ആരോഗ്യ സേവനം സാധാരണ നിലയിലാക്കാൻ ചീഫ് ജസ്റ്റിസ് ടി

ഡോക്ടർമാർക്കെതിരെ നടന്ന ആക്രമണത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു

എസ് എസ്

എന്നാൽ ഒ

ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സൂചനാ ്പണിമുടക്ക് നടത്തുകയാണ് ഇന്ത്യൻ മെഡിക്കൽ അസ്സോസിയേഷൻ രാജ്യത്തുടനീളം സൂചനാ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്

ഛണ്ഡീഗഢിലെ പോസ്റ്റ് ഗ്രാജേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിലെ ഡോക്ടർമാരാണ് പ്രകടനം നടത്തിയത്

വിദ്യാഭ്യാസ നിലവാരം യുവാക്കളില്ല് ട്ട്നെപുണ്യം തൊഴിലവസരങ്ങൾ സ്ത്രീ ശാക്തീകരണം തുടങ്ങിയവ കൂടുതൽ മെച്ചപ്പെടുത്താൻ ഗവൺമെന്റ് പ്രതിജ്ഞാ്ബ്ദ്ധമാണെന്ന് അവർ പറഞ്ഞു ബജറ്റിന് മുന്നോടിയായി സാമൂഹ്യ മേഖലയിലെ ബന്ധപ്പെട്ടവരുമായി നടത്തിയ ചർച്ചയിലാണ് കേന്ദ്രമന്ത്രി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്

ടി ഐ കളിലൂടെ ഡിജിറ്റൽ സമ്പദ്ഘടനാ സാമ്പത്തിക രംഗത്ത് പ്രാവീണൃം നൽകാൻ നൈപുണൃ വികസന മന്ത്രാലയത്തിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രെയിനിംഗ് സിസ്കോ ആക്സെഞ്ചർ എന്നീ കമ്പനികളുമായി സഹകരിക്കും ഭാരത് സ്കിൽസ് എന്ന പോർട്ടലിലൂടെ ഇന്ത്യയിലുടനീളമുള്ള ഐ ടി

ഡിജിറ്റൽ സാക്ഷരത തൊഴിൽ നൈപുണ്യം ഡാറ്റാ അനലിറ്റിക്സ് തുടങ്ങിയ നൂതന സാങ്കേതിക വൈദഗ്ധ്യം അടങ്ങുന്നതാണ് പാഠ്യപദ്ധതി

സംസ്ഥാനത്ത് പുതുതായി ഭീകരസംഘടനയിൽ ചേർന്ന നാലു പേരെ സുരക്ഷാസേന അറസ്റ്റ് ചെയ്തു ഒരു റിപ്പോർട്ട്

പുൽവാമ ജില്ലയിലെ അബു സറാർ എന്ന ഇർഫാൻ അഹമദ് ദേഗു തദാസക് അമിൻ ഷാ എന്നിവരാണ് അവർ അവന്തിപ്പോരയിലും ദക്ഷിണകശ്മീരിലെ മറ്റ് ഭാഗങ്ങളിലും മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ് ശ്രീനഗറിൽ നിന്നും ദക്ഷിണകശ്മീർ വഴി ജമ്മുവിലേക്കുള്ള തീവണ്ടി സർവ്വീസും സുരക്ഷ മുൻ കരുതൽ നടപടിയുടെ ഭാഗമായി നിർത്തി വച്ചു

ഉത്തര കശ്മീരിൽ ബാരാമുള്ള ജില്ലയിലെ ബോണിയർ പ്രദേശത്താണ് സംഭവം നിയന്ത്രണ രേഖ മറികടന്ന് ആയുധപരിശീലനത്തിന് തയ്യാറെടുക്കുകയായിരുന്നു ഇവരെന്ന് സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു ഇതുസംബന്ധിച്ച രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് പ്രദേശത്തെ ഒളിത്താവളത്തിൽ സുരക്ഷാസേന സംയുക്തമായി തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഇവർ പിടിയിലായത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇതുമായി ബന്ധപ്പെട്ട് ക്ടർണാടക പൊലീസിൽ ലഭിച്ച പരാതിയെ തുടർന്ന് കേസ് രജിസ്റ്റർ ്ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു അന്വേഷണ ഏജൻസി തെളിവുകൾ ശേഖരിച്ചുവരികയാണെന്നും ഉടൻ തന്നെ ചിലരെ ചോദ്യം ചെയ്തേക്കുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞു

എം

നിലവിൽ പതിനൊന്ന് കോടി അംഗങ്ങളുള്ള പാർട്ടിയുടെ അംഗത്വ പ്രചാരണ പരിപാടി രാജ്യത്തുടനീളം അടുത്ത മാസം ആറിന് ആരംഭിക്കുമെന്നും എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ബംഗാൾ കേരളം ഒഡീഷ പുതുച്ചേരി തമിഴ്നാട് ലക്ഷദ്വീപ് തെലങ്കാന ആന്ധ്രാ പ്രദേശ് സിക്കിം എന്നീ സംസ്ഥാനങ്ങൾക്ക് പരിപാടിയിൽ കൂടുതൽ പരിഗണന നൽകും ബിജെപി മികച്ച വിജയം കൈവരിച്ചെങ്കിലും ഏറ്റവും മികച്ചത് വരാനിരിക്കുന്നതേയുള്ളൂ സമൂഹത്തിലെ ഉത്തമ പൌരന്മാരെ പ്രത്യേകിച്ച് യുവാക്കളെ ബിജെപി ഒരു കുടക്കീഴിൽ കൊണ്ടുവരുമെന്നും ശ്രീ ചൌഹാൻ കൂട്ടിച്ചേർത്തു

സതാംപ്റ്റണിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് വെസ്റ്റിൻഡീസിനെ ബാറ്റിംഗിയച്ചു